അനിവാര്യമായ ഏത് നടപടിയും സ്വീകരിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രധാനമന്ത്രി

പിക്ക് നേട്ടം

വാർത്തകൾ വിശദമായി ഇന്ത്യൻ മണ്ണിൽ ആരും കടന്നു കയറിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി നമ്മുടെ പോസ്റ്റുകൾ ആരും പിടിച്ചടക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഒരിഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ല

ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വീഡിയോ കോൺഫറൻസിങ്ങ് വഴി ന്യൂഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നമ്മുടെ അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടെന്നും നിയന്ത്രണ രേഖയിലെ പട്രോളിങ് ശേഷി വർധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

അനിവാര്യമായ ഏതു നടപടിയും സ്വീകരിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ നിലപാട് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ചൈനയെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ യോഗത്തിൽ മുന്നോട്ടുവെച്ച നിർദേശങ്ങൾ ഭാവിതന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സഹായകമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കോൺഗ്രസും മുഴുവൻ പ്രതിപക്ഷവും സൈന്യത്തിനു പിന്നിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു രുമ ആറാമത് അന്താരാഷ്ട്ര യോഗദിനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാദിന സന്ദേശത്തോടെ വീടുകളിൽ യോഗാചരണത്തിന് തുടക്കമാകും

രുമ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൊവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ

പെരിന്തൽമണ്ണ യൂണിറ്റിലെ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ജില്ലയിലെ വിവിധ യൂണിറ്റിലുള്ളവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്

കോവിഡ് വ്യാപന പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിലെ ചില പ്രദേശങ്ങളെക്കൂടി കണ്ടെയിൻമെന്റ് സോണാക്കി

വിദേശത്ത് നിന്നെത്തിയ നാലു പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മൂന്നു പേർക്കുമാണ് ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ

പുതുതായി ഒരാൾക്കാണ് രോഗം ബാധിച്ചത് രുമ കാസർകോട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗ വ്യാപനം തടയാൻ ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രതാ സമിതികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഇ

ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ സമ്പർക്കം വഴി രോഗവ്യാപനം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

എൻട്രൻസ് പരീക്ഷകൾ ഉൾപ്പെടെ നിരവധി പരീക്ഷകൾ നടക്കുന്നതിനാലാണ് നാളെ സമ്പൂർണ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് ഒവിവാക്കിയത് രുമ ഈ മാസം പത്തിന് പുതുക്കി നൽകിയ ഹോം ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ചില സംസ്ഥാനങ്ങൾ നിർദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് ശ്രദ്ധയിൽ പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം ആവശ്യപ്പെട്ടത്

രോഗബാധിതരിൽ റഷ്യ മൂന്നാം സ്ഥാനത്തും ഇന്ത്യ നാലാം സ്ഥാനത്തുമാണ്

എട്ട് സീറ്റുകളിൽ ബി ജെ പിയും നാല് സീറ്റുകളിൽ കോൺഗ്രസും വിജയിച്ചു ഗുജറാത്തിലെ നാല് സീറ്റുകളിൽ മൂന്ന് ബി

മധ്യപ്രദേശിൽ മുൻമുഖ്യമന്ത്രി ദ്വിഗ് വിജയ്സിംഗ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരാണ് വിജയിച്ച പ്രമുഖർ ഇവിടെ രണ്ട് സീറ്റിൽ ബി ജെ പിയും ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് വിജയിച്ചത് രാജസ്ഥാനിൽ കെ സി വേണുഗോപാൽ അടക്കം രണ്ട് പേരെ വിജയിപ്പിക്കാൻ കോൺഗ്രസിനായി ഝാർഖണ്ഡിൽ രണ്ട് സീറ്റ് ബി ജെപിയും ഒന്ന് ജെ എം എമ്മും നേടി രുമ രാജ്യത്തെ ആയിരം ജില്ലകളിൽ ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു മുൻകാല കായിക ചാംപ്യൻമാരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി താഴെത്തട്ടിൽ കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാനും അവർക്ക് സ്ഥായിയായ വരുമാനം ഉറപ്പാക്കാനുമാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് രാജ്യത്തെ സൂപ്പർ കായിക ശക്തിയാക്കി മാറ്റാൻ ഗവൺമെന്റ് പദ്ധതികൾ തയാറാക്കുകയാണെന്ന് കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജ് ജു അറിയിച്ചു

വിദ്യാർത്ഥികളുടെ പഠന സൌകര്യം വിലയിരുത്തുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രേര കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിലെ നാലാമത്തെതും അവസാനത്തേതുമായ രോഹിണി ആരാധന ഇന്ന് നടക്കും രോഹിണി ആരാധനയുടെ ഭാഗമായ ആലിംഗന പുഷ്പാഞ്ജലി കോവിഡ് പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാതെയാണ് വൈശാഖോത്സവം നടത്തുന്നത് രുഭ കടൽക്ഷോഭം രൂക്ഷമായതോടെ പൊന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി മേഖലകളിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു ഇരുപതോളം വീടുകൾ എതുനിമിഷവും തകർന്ന് വീഴാവുന്ന സ്ഥിതിയിലാണ് നിരവധി വീടുകളിൽ വെള്ളവും മണലും കയറി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായി